ഇന്ന് തുടക്കം ഭൂമിപൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും അയോധ്യാ നഗരം ഭക്തിനിർഭരം

പരിശ്രമിക്കണമെന്ന് നിയമവിദ്യൂർത്ഥികളോട് ഉപരാഷ്ട്രപതി എം

തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ എൻ ഐ

രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു

വോട്ടെടുപ്പ്

ഭൂമിപൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും മതനേതാക്കളും അയോധ്യയിൽ നിന്നുള്ള പൌര പ്രമുഖരും പ്രധാനമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കും കോവിഡ് പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് ചടങ്ങുകൾ നടക്കുക ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട് മൂന്നു ദിവസം നീണ്ടുനിന്ന ചടങ്ങുകളാണ് നടന്നത് കീർത്തന പാരായണവും ദീപങ്ങൾ തെളിയിച്ചുള്ള ചടങ്ങും രണ്ടാം ദിനമായ ഇന്നലെ നടന്നു

അതിനുശേഷം ശ്രീരാമജന്മഭൂമിയ്ക്ക് ശ്രീറാംലല്ല ഭഗവാന് പൂജ നടത്തും

ശിലാഫലകം അനാവരണം ്ലൂച്ചയ്തശേഷം ശ്രീരാമജന്മഭൂമി ക്ഷേത്ര അനുസ്മരണ ത്യാൽസ്റ്റാമ്പ് പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും നഗരം മുഴുവീൻ ഇ്ന്നലെ മുതൽ തന്നെ ഉത്സവപ്രതീതിയിലാണ്

എസ് എസ് മേധാവി മോഹൻ ഭഗവത് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസ് എന്നിവർ വേദിയിലുണ്ടാവും

പാർശ്വവത്ക്കരിക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു എല്ലാ സംവിധാനങ്ങളും പൊതുജീവിതവും മാതൃഭാഷ ഉപയോഗിക്കുകയും പരിശീലിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ കഠിനമായി പരിശ്രമിക്കണം വിദ്യാഭ്യാസമായാലും ഭരണമായാലും ജുഡീഷ്യറിയായാലും മാതൃഭാഷയിൽ സംസാരിക്കാനും വാദിക്കാനും എഴുതാനും കഴിയണം അങ്ങനെ അവർക്ക് സ്വതന്ത്രമായ ആശയപ്രകടനത്തിനും കഴിയുമെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

കോവിഡ് ബാധിച്ച രണ്ടാമത്തെ കേന്ദ്രമന്ത്രിയാണ് ശ്രീ

കേന്ദ്രമന്ത്രി അമിത്ഷാ കോവിഡ് ബാധിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ്

ഒന്നേകാൽ ലക്ഷം പേർ ഇതുവരെ രോഗമുക്തി നേടിയതായി ഡൽഹി സർക്കാർ അറിയിച്ചു

അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടേയും വേദനയിൽ പങ്കുചേരുന്നതായി പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് നിയമപരമായ സാധുതയോ അന്താരാഷ്ട്ര വിശ്വാസ്യതയോ ഇല്ലെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി

പെരിന്തൽമണ്ണ സ്വദേശി ഷറഫുദ്ദീൻ മണ്ണാർക്കാട് സ്വദേശി ഷെഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്

ഐ എ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ എൻ്ടുഐ

ഇതോടെ കേസിൽ ഏൻ

നാല്പായിരത്തോളം പേർക്ക് പരിക്കേറ്റു തുറമുഖ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾ ഇരട്ട സ്ഫോടനത്തിൽ തകർന്നു നിരവധി വാഹനങ്ങളും തകർന്നു

സ്ഫോടനത്തെ തുടർന്ന് തുറമുഖത്തെ സ്ഫോടകവസ്തു ഡിപ്പോയിൽ തീപിടുത്തമുണ്ടായി

ബയ്റൂട്ടിലെ ഇന്ത്യക്കാർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള സൌകര്യം ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ഒരുക്കിയിട്ടുണ്ട്

എ ഇ സൌദി ഭരണാധികാരികൾ ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളെ അനുശോചനം അറിയിച്ചു

കോവിഡ് മാർഗ്ഗരേഖ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത് വോട്ടെണ്ണൽ വെള്ളിയാഴ്ച അന്നുതന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

തിരുവനന്തപുരം കൊല്ലം പത്തനുംതിട്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലൂക്കാട് ജില്ലകളിൽ യെല്ലോ അലെർട്ടാണ് താഴ്ന്ന പ്രദേശങ്ങൾ നദീത്രീരങ്ങൾ ഉരുൾപ്പൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നീ മേഖലകളിൽ കഴിയുന്നവർ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

ദർബംഗ മുസാഫർപൂർ സമസ്തിപൂർ സീതാമർഹി എന്നീ ജില്ലകളെയാണ് പ്രളയം കൂടുതൽ ബാധിച്ചത്

താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന രോഗബാധിതരായ ആളുകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശമുണ്ട്

കാലാവസ്ഥ ദുരന്ത നിവാരണ വകുപ്പുകളുടെ മുന്നറിയിപ്പ് പ്രകാരം ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി തീയതിയിൽ മാറ്റം വരുത്തിയത് എല്ലാ ബോട്ടുകൾക്കും രജിസ് ട്രേഷൻ നമ്പരിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് അനുമതി

ചതയദ്ദിന്യത്തോടും സമാധി ദിനത്തോടും ബന്ധപ്പെട്ട് പ്രാർത്ഥനകളൂർ ഉപ്പ്പാസവും കഴിവതും വീടുകൾ കേന്ദ്രീകരിച്ച് ഭക്തിനിർഭ്യമായി നടത്തണമെന്ന് വിവിധ യൂണിയനുകൾക്ക് അയ്ച്ച് സർക്കുലറിൽ അറിയിച്ചു